വിനോദ സഞ്ചാര പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ലഷ്കർ ഇ മുസ്തഫ എന്നീ സ്റ്റംഘടനയ്ക്കെതിരെ എൻ

കോവിഡ് രോഗികൾ രാജ്യത്ത് ഗണ്യമായി കുറയുന്നു

ഹോക്കിയിൽ ഇന്ത്യയും ജർമ്മനിയും സമനിലയിൽ

മൂന്നുദിവസത്തെ മാരിടൈം ഇന്ത്യാ ഉച്ചകോടി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജലപാതകളുടെ വികസനത്തിന് വലിയ നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത്

സമുദ്രഗതാഗതവും സമുദ്രാധിഷ്ഠിത സമ്പദ്ഘടനയും ശക്തിപ്പെടുത്താൻ ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് നടന്നുവരുന്നത് ഇന്ത്യ ഈ രംഗത്തെ സ്വാഭാവിക നേതൃസ്ഥാനത്താണെന്ന് പ്രധാന മന്ത്രി പറഞ്ഞു ഇന്ത്യയ്ക്ക് മികച്ച നാവിക ചരിത്രമാണുള്ളത് നാവിക വികസന പഥത്തിൽ പങ്കാളിയാവാൻ ലോകർാജ്യങ്ങളെ ശ്രീ

തീവ്രവാദ സംഘടനയായ ജെയ്ഷ ഇ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം ഭീകരപ്രവർത്തനം നടത്തിയതിനാണ് നടപടി നേരത്തെ എൽ

എം നേതാവായ ഹിദായത്ത് യുല്ലാ മാലിക്കിനെ എൻ

ഇയാളിൽ നിന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിരുന്നു

ഇ എം മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് സുരക്ഷാ സംവിധാനങ്ങൾ നിരീക്ഷിച്ചതായും പരിശോധനയിൽ കണ്ടെത്തി

ഐ എ വ്യക്തമാക്കി

കേന്ദ്ര ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കോവിഡ് വാക്സിൻ ദേശീയ വിദഗ്ദ്ധ സമിതി അംഗം ഡോ

എസ് ശർമ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണപ്രദേശങ്ങളുടെയും ആരോഗൃ സെക്രട്ടറിമാർ എന്നിവരുമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി

എല്ലാ സർക്കാർ ആരോഗ്യ സൌകര്യങ്ങൾക്കും പുറമെ കേന്ദ്ര സർക്കാർ ആരോഗ്യ പദ്ധതി സി

എസ് ആയുഷ്ട്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സമാനമായ സ്കാസ്ട്രാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയ്ക്കിൻ ക്ടീഴിൽ എംപാനൽ ചെയ്ത എല്ലാ സ്ഥകാര്യ ആശുപത്രികൾക്കുർ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കുന്ന ക്ട്ക്ോവി്ഡ് വാക്സിൻ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കാറ്റ്

കോവിഡ് വാക്സിനുകൾക്ക് ഒരു കുറവുമില്ലെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ കോവിഡ് വാക്സിനുകൾ സംഭരിക്കേണ്ടതില്ലെന്നും ആരോഗ്യ സെക്രട്ടറി വൃക്തമാക്കി എല്ലാ സ്വകാര്യ ആശുപത്രികളിലും കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിലും ഇരിപ്പിടം വെള്ളം എന്നീ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനാൽ തന്നെ ആൾക്കൂട്ട നിയന്ത്രണത്തിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കും

തമിഴ്ന്റാട്ടിലും പഞ്ചാബിലും പ്രത്യേക കേന്ദ്ര സംഘത്തെ നിയ്യോഗിച്ചതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു

എന്നാൽ വൃതിയാനം വന്ന വൈറസുകൾ കണ്ടെത്തുന്നതിനാൽ യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്

ജെ

ക്ക് ഉജ്ജ്വല വിജയം

ജെ

ജെ

ജെ

ജെ പിയുടെ ആശയത്തിൽ ഗുജൂറ്യാത്തിലെ ജനങ്ങൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്ണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ജെ പിയോടുള്ളൂ അ്ചഞ്ചല വിശ്വാസത്തിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫ്ലെങ്മന്ന് ശ്രീ നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ അറിയിച്ചു

ടി ടി പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ പ്രസാധകർ വാർത്താ പ്രസാധകർ എന്നിവർക്കും ഇതിന് വിലക്കുണ്ട് വിവരങ്ങൾ നൽകേണ്ടതും വെളിപ്പെടുത്തേണ്ടതും വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും ശ്രീ

വിയും ലോക്സഭ ടി

വി എന്നായിരിക്കും ഇനി അറിയപ്പെടുക മുൻ ഐ

എസ് ഓഫീസർ രവി കപൂറിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു

രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യനായിഡുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് തീരുമാനമെടുത്തത്

വേദപഠനം സംസ്കൃത ഭാഷയും വ്യാകരണവും ഇന്ത്യൻ തതചിന്ത തുടങ്ങിയ വിഷയങ്ങൾ പ്രചരിപ്പിക്കാൻ ഓപ്പൺ സ്കൂൾ രാജൃത്തിനകത്തും പുറത്തും നല്ല ശ്രമങ്ങൾ നടത്തുന്നതായി ശ്രീ

എ ഇ യിലെ അൽ ദാഫ്ര വ്യോമത്താവളത്തിൽ നാളെ മുതൽ ആരംഭിക്കുന്ന യുദ്ധ വ്യോമാഭ്യാസത്തിൽ ഇന്ത്യൻ വ്യോമസേന ആദ്യമായി പങ്കെടുക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആതിഥേയത്വം വഹിക്കുന്ന വാർഷിക യുദ്ധാഭ്യാസമാണ് ഇത്

ഇന്ത്യയുടെയും യു എ ഇ യുടെയും വ്യോമസേനകൾക്കൊപ്പം അമേരിക്ക ഫ്രാൻസ് സൌദി അറേബൃ ദക്ഷിണ കൊറിയ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമസേനകളും വ്യോമ അഭ്യാസത്തിൽ പങ്കെടുക്കും

മികച്ച പ്രവർത്തനങ്ങളുടെ കൈമാറ്റത്തിനൊപ്പം ഓരോ രാജ്യങ്ങൾക്കും പ്രവർത്തന മികവ് പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരവും ലഭിക്കും യുദ്ധ സാഹചര്യങ്ങളിലേത് ഉൾപ്പെടെയുള്ള അറിവും പ്രവൃത്തി പരിചയവും മാറ്റുരയ്ക്കുന്നതിന് വ്യോമാഭ്യാസ ത്തിലൂടെ കൂടുതൽ പരിശീലനവും ഓരോ രാജ്യത്തിനും ലഭിക്കും ആഗോള തലത്തിൽ വൈവിദ്ധ്യമുള്ള യു എസ് പോർ വിമാനങ്ങൾ പങ്കെടുക്കുന്നതിനാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉൾപ്പെടെ കൂടുതൽ ആശയങ്ങളും അറിവും കൈമാറ്റം ചെയ്യാനാകും അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും യുദ്ധാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്

ജർമ്മൻ പ്രീത് സിങാണ് ്ഇന്ത്യയ്ക്കുവേണ്ടി ഗോൾ നേടിയത്